നടപടികൾ സ്വീകരിച്ചു വരുന്നതായി ധനമന്ത്രി തോമസ് ഐസക്

കൊറോണ വൈറസ് കേരള കൊറോണ വൈറസ് ബാധയെ തുടർന്ന് സംസ്ഥാന ഗവൺമെന്റ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കി

തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വഴിയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കും തുടക്കമായി

കൊറോണ വൈറസ് ബാധ നേത്രിട്ടിൽ ആരോഗ്യമേഖലാ സംവിധാനങ്ങൾ സജ്ജമാണെന്ന് അധികൃതൂർ അറിയിച്ചു

എ

എ കേസുകളിലും പ്രതിയാണ്

കേന്ദ്ര ഗവൺമെന്റിന് സംസ്ഥാനം കേസ് വിട്ടുകൊടുത്തു എന്ന പരാമർശം തെറ്റാണെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി

മുനീറിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിനു മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി ഹാജർ കുറവായതിനാലാണ് അലനെ കോളേജിൽ നിന്ന് പുറത്താക്കിയത് വിദ്യാർത്ഥികളെ കഴിഞ്ഞ നാല് മാസമായി ഗവൺമെന്റ് തടങ്കലിൽ വച്ചിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു

എന്നാൽ തദ്ദേശസ്ഥാപനങ്ങളുടെ പദ്ധതി ചെലവ് വെട്ടിക്കുറച്ചിട്ടില്ലെന്ന് ധനമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി

ഹൌസ് ബോട്ടുകൾക്ക് ഒരു റെഗുലേറ്ററി അതോറിറ്റി കൊണ്ടുവരുന്ന കാര്യം ഗവൺമെന്റ് പരിഗണിക്കുമെന്നും മന്ത്രി ചോദ്യോത്തരവേളയിൽ പറഞ്ഞു സംസ്ഥാനത്ത് കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ഈ മാസം വിനോദസഞ്ചാരികൾ ഹോട്ടലുകളിൽ ചെയ്ത ബുക്കിംഗുകളെല്ലാം റദ്ദാക്കിയതായും മന്ത്രി പറഞ്ഞു